റാഫേൽ വിമാന്റ്ങ്ങളുടെ വില യു

എ

ജി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചു

ഗവൺമെന്റിന് സമ്പൂർണ്ണ ഭൂരിപക്ഷം ഉള്ളതു കൊണ്ടാണ് ഇന്ത്യ ലോകത്ത് ശ്രദ്ധേയമായ സ്ഥാനം നേടിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം

ഇന്ത്യയുടെ ആത്മവിശ്വാസം ഏറ്റവും ഉയരത്തിലാണെന്നും ഇത് വികസനക്കുതിപ്പിനിടയാക്കുമെന്നതിനാൽ ഗുണകരമാകുമെന്നും ശ്രീ നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ലോകം ആഗോള താപനം ചർച്ച ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര സൌര സഖ്യ രൂപീകരണത്തിലൂടെ ഇന്ത്യ പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചു ഏറ്റവും കൂടുതൽ വനിതാംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ രാജ്യം പതിനാറാം ലോക്സഭയെക്കുറിച്ച് അഭിമാനം കൊള്ളും ജി എസ്

പാസ്സായത് സഹകരണത്തിന്റേയും രാഷ്ട്രീയ ർഎകൃത്തിന്റേയും ശക്തി വെളിവാക്കിയതായും പ്രധാനമന്ത്രി പറ്ഞ്ഞു

സി സി

എസ് എൽ

നവഇന്ത്യയുടെ സ്ഥപ്ന സ്ട്രൂക്ഷാത്ക്കാരത്തിന് ബഹുദൂരം സഞ്ചരിച്ച പതിനാറാം ലോക്സഭയുടെ ്ട്രിന്ടപടികൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് സ്പീക്കർ സുമിത്രാ മഹാജൻ പറഞ്ഞു

ആദ്യത്തെ പിരിയലിന് ശേഷം ഉച്ചയ്ക്ക് സഭ സമ്മേളിച്ചയുടൻ നന്ദി പ്രമേയ ചർച്ചയിൽ ബി ജെ

ഭൂപേന്ദ്ര യാദവ് ഹ്രസ്വ പ്രസ്താവന നടത്തി

നിരവധി വിഷയങ്ങളിൽ രാജ്യസഭയുടെ ബജറ്റ് സമ്മേളനം തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു

നിയമവിരുദ്ധമായി സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി പിയൂഷ്ഗോയൽ പറഞ്ഞു ജാലിയൻവാലാബാഗ് സ്മാരക ബിൽ ലോകസഭയും വൃക്തി നിയമ ഭേദഗതി ബിൽ രാജ്യസഭയുംഇന്ന് പാസ്സാക്കി

ഗ്ല്യൺമെന്റ് ഏർപ്പെട്ടത് മുൻ യു

എ

ജി റിപ്പോർട്ട്

എ ഗവൺമെന്റിന്റെ നിലപാട് ശരിവയ്ക്കുന്നതാണ് റിപ്പോർട്ടെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രതികരിച്ചപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി

രാജ്യത്തിന്റെ പ്രതിരോധ താത്പര്യങ്ങൾ കണക്കിലെടുത്ത് റാഫേൽ വിമാനങ്ങളിൽ ആവശ്യ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചർച്ചയിൽ ഇന്ത്യ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു

ഗവൺമെന്റിന്റെ നിലപാട് പൂർണമായി ശരിവയ്ക്കുന്നതാണ് സി

ജി റിപ്പോർട്ടെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

അതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർട്ടി എം

റാഫേൽ ഇടപാട് ഒരു വ്യവസായിയുടെ മാത്രം ലാഭം ലക്ഷ്യമിട്ടുള്ളത്തായിരുന്നുവെന്ന് ശ്രീ

മെച്ചപ്പെട്ട വില സത്വര ലഭ്യത എന്നീ രണ്ട് കാരൃങ്ങളിലും ഗവൺമെന്റ് പരാജയപ്പെട്ടതായി അദ്ദേഹം ആരോപ്പിച്ചു ഫ്രാൻസിലെ ദസാൾട്ട് ഏവിയേഷൻ കമ്പനിയുടെ ചരിത്രം പ്രിശോധിച്ചാൽ ഇന്ത്യക്ക് അവസാന വിമാനം ലഭിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷമായിരിക്കും

സുപ്രീംക്ക്ട്ട്ട്ടതിയിൽ നിരവധി രേഖകൾ ഗവൺമെന്റ് മനപൂർവ്വം സമർപ്പിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജയ്പൂർ മേഖല കേന്ദ്രത്തിലായിരുന്നു ഇന്നും ചോദ്യം ചെയ്യൽ ഇന്നലെ വാദ്രയും അമ്മയും ചോദ്യം ചെയ്യലിന് ഇ

കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ മൂന്ന് തവണ വാദ്രയെ ഡൽഹിയിൽ ചോദ്യം ചെയ്തിരുന്നു

സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം നേരത്തെ പ്രധാനമന്ത്രി വീക്ഷിച്ചു

റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നൂതന്യആശയങ്ങളും സംരംഭങ്ങളും യോഗം ചർച്ച ചെയ്യും പുതുതലമൂറ്റ എന്നതാണ് പ്രമേയം

ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ മ്യാൻമാർ ഒരു ഗോളിന് മുന്നിലാണ് മത്സരിച്ച രണ്ടെണ്ണത്തിലും വിജയം നേടിയാണ് മ്യാൻമാർ ഇന്ത്യയോട് പൊരുതുന്നത് ആദ്യ മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനോട് പരാജയപ്പെട്ടിരുന്നു ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നേപ്പാൾ ഇറാനെ ഏകപക്ഷീയമായ ദ ഗോളുകൾക്ക് പരാജയപ്പെടുത്തി

പൊതു താത്പര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ച് താത്ക്കാലിക സ്റ്റേ അനുവദിച്ചത് മൂന്നാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം

ഔസേപ്പ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി

അതിനിടെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണെന്ന് മൂന്നാർ പഞ്ചായത്ത് കോടതിയെ അറിയിച്ചു കെട്ടിട നിർമ്മാണം അനധികൃതമാണെന്ന് ഗവൺമെന്റും ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്

ആർദ്രം പദ്ധതിയുടെ ഭാഗമായി പ്രാഥമികാരോഗൃ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ആശുപത്രികളിലും മികച്ച സൌകര്യമൊരുക്കും താലൂക്ക് ആശുപത്രികളിൽ ഡയാലി സിസ് കേന്ദ്രങ്ങളും ജില്ല ജനറൽ ആശുപത്രികളിൽ കാത്ത് ലാബും അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വൃക്തമാക്കി

പരിക്കേറ്റ വിദ്യാർത്ഥികളെ പുൽവാമ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ചില വിദ്യാർത്ഥികളെ ശ്രീനഗർ ആശുപത്രിയിലേയ്ക്ക് മാറ്റി സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു

മേഖലയിൽ ഭീകരവാദികളുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം നടത്തിയ തെരച്ചിലിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് ഡി ജി

വി ഐ പി ചോപ്പർ കളളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ദുബായ് ആസ്ഥാനമായ ബിസിനസ്സുകാരൻ രാജീവ് സക്സേനയുടെ ജാമ്യാപേക്ഷയിൽ ഡൽഹി കോടതി നാളെ വാദം കേൾക്കും

എന്നാൽ മഹാരാഷ്ട്ര പ്പോലീസ് ചാർജ്ജ് ഷീറ്റ് ഫയൽ ചെയ്തതിനാൽ അഞ്ച് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ജാമ്യം തേടാവുന്നതാണെന്നും സുപ്രീംകോടതി പറഞ്ഞു

ഈ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു